നിക്ഷേപക സമ്മേളനം അന്താരാഷ്ട്ര നിക്ഷേപം വളർത്താൻ സമ്മേളനം അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിൽ രാജ്യം

കേന്ദ്ര അംഗീകാരം

കേന്ദ്ര ധനമന്ത്രാലയം ദേശീയ നിക്ഷേപക് അടിസ്ഥാന സൌകര്യ നിധി എന്നിവ സംയുക്തമായാണ് വെർച്ചൽ സംവിധാനത്തിൽ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആറ് ട്രില്യൺ അമേരിക്കൻ ഡോളർ ് ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ് ഇരുപതോളം സാമ്പത്തിക വൃവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പടെ ചർച്ചയിൽ സംബന്ധിക്കും

എസ് യൂറോപ്പ് കനഡ കൊറിയ ജപ്പാൻ മധ്യേഷ്യ ഓസ് ട്രേലിയ സിംഗപ്പൂർ എന്നീ നിപ്രധാന മേഖലകളെ പ്രതിനിധാനം ചെയ്തുള്ള ആഗോള നിക്ഷേപകരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന

ധാരണപ്രകാരം ഇന്ത്യയിലെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും ബ്രിട്ടനിലെ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബി ഐ യ്ക്ക് നൽകിയ പൊതുഅനുമതി പിൻവലിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ആവശ്യമെന്ന് കണ്ടെത്തുന്ന കേസുകളുടെ അന്വേഷണം അതതു അവസരങ്ങളിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരം മാത്രം സി ബി

ഒരുകോടി പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്

ജെ പി നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് പറഞ്ഞു ബിഹാറിലെ പുർണിയയിൽ തെരഞ്ഞെടുപ്പു റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടുഘട്ടമായി ഡിസംബർ ആദ്യവാരം നടത്താനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്

ശർമ്മ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ് ചർച്ച നടത്തി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന അവലോകന യോഗത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഹൃദേശ് കുമാർ ഡിവിഷണൽ കമ്മീഷണ്ർമാരായ പാണ്ഡുരംഗ് പോൾ സഞ്ജീവ് വർമ്മ ഗ്രാമവികസന സെക്രട്ടറി ഷീറ്റൽ നന്ദ എന്നിവർ പങ്കെടുത്തു ജമ്മു കശ്മീരിലെ ജില്ലാ വികസന കൌൺസിൽ നിയോജകമണ്ഡലങ്ങൾക്കായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രത്യേക സംവരണ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു

ഇനി പുറത്തു വരാനുള്ള ഫലങ്ങൾ ഇരു സ്ഥാനാർഥികൾക്കും നിർണായകമാണ് പ്രധാന സംസ്ഥാനങ്ങളായ പിസ്കോൺസിൻ മിഷിഗൺ എന്നിവിടങ്ങളിൽ ദശലക്ഷക്കണക്കിന് വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട്

വോട്ടെണ്ണലിന്റെ പ്രാരംഭ ഫലം പുറത്തു വന്നപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡോണൾഡ് ട്രംപ്പ് തന്റെ പാർട്ടി വലിയ വിജയമാണ് നേടിയതെന്ന് അവകാശപ്പെട്ടു

വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ചില പ്രതിപക്ഷ പാർട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നും അദ്ദേഹം ഒരു പ്രാദേശിക വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൂ ഈമാസം എട്ടിനാണ് മ്യാൻമറിലെ പൊതുതെരഞ്ഞെടുപ്പ്

കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്

ശ്രീരാമകൃഷ്ണൻ മന്ത്രിമാരായ ഇ

നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം ആവശ്യമായ എല്ലാ സഹായങ്ങളും അധികൃതർ നൽകുന്നുണ്ടെന്നും അദ്ദേഹം ടിറ്ററിലൂടെ അറിയിച്ചു